ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാലാംഘട്ട വോട്ടെടുപ്പിനുള്ള പരസൃ പ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും

അസമിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വീധേയമെന്ന് സംസ്ഥാന പൊലീസ് മേധാവി

കള്ളപ്പണം വെളുപ്പിക്കൽ ്കേസിനെ തുടർന്ന് രാജ്യംവിട്ട വ്യാപാരി മെഹുൽ ചോക്സിയുടെ ജാമൃമില്ലാ വാറണ്ട് റദ്ദാക്കാൻ മുംബൈയിലെ പ്രത്യേക കോടതി വിസമ്മതിച്ചു

ബ്രിട്ടണിൽ പൊതുതെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ബൊറീസ് ജോൺസന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഭൂരിപക്ഷം

പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ അവസാന വട്ട പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷായും വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദയും ഇന്ന് വിവിധ ഇടങ്ങളിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും

അക്രമത്ത്തിൽ ട്ർന്ന് ആയിരത്തിലധികം പേരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തു

കാമരൂപ് മെട്രോ ഷ്ട്രില്ല്യിൽ നിശാനിയമം തുടരുന്നു ദിബ്രുഗഡ് നഗരപ്രദേശത്ത് ഇന്നലെ അഞ്ച് മണിക്കൂർ നിശാനിയമത്തിൽ ഇളവ് വരുത്തിയിരുന്നു തലസ്ഥാനുമായ് ഗുവഹത്തിയിലും മറ്റും ഭക്ഷണസാധനങ്ങൾ വിതരണം പ്പെച്ചാൻ സംവിധാനമേർപ്പെടുത്തിയിട്ടുണ്ട്

ചോക്സിയുടെ അഭിഭാഷകന്റെയും സി ബി ഐ അഭിഭാഷകന്റെയും വാദം കേട്ട പ്രത്യേക സി ബി ഐ

ബാർഡെ ജാമ്യം നൽകണമെന്ന ചോക്സിയുടെ ആവശ്യം നിരാകരിക്കുകയായിരുന്നു വാറന്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ചോക്സി കഴിഞ്ഞ വർഷം ജൂണിലാണ് കോടതിയെ സമീപിച്ചത് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടി കോടതി അയച്ച സമൻസിന് പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് വാറന്റ് പുറപ്പെടുവിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലും ചോക്സിയുടെ അപേക്ഷ കഴിഞ്ഞ് ആഴ്ച കോടതി തള്ളിയിരുന്നു

വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു

ഉദാരവൽക്കരണം മൂലം നേരിട്ടുള്ള വിദേശ നിക്ഷേപം നടപ്പ് വർഷം റെക്കോഡിട്ടെന്ന് ഗവൺമെന്റിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ പറഞ്ഞു

മുൻഗണന ഇതര മേഖലകളിൽ ഗവൺമെന്റ് ഓഹരി വിറ്റഴിക്കൽ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നടപ്പു സാമ്പത്തിക വർഷം ഇതുവരെ ഐ

അതിർത്തി റോഡ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ സമിതി വിലയിരുത്തി

ആർ ഒ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഹർപാൽ സിങ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു അതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങളിലടക്കം അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് ബി ആർ ഒ വഹിക്കുന്ന പങ്കിനെ കേന്ദ്രമന്ത്രി പ്രകീർത്തിച്ചു യോഗത്തിൽ സമിതിയിലെ അംഗങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി രാജ്യരക്ഷാ സഹമന്ത്രി ശ്രീപദ് യശോനായിക് പാർലമെന്റ് അംഗങ്ങളായ അദിർ രഞ്ജൻ ചൌധരി മനീഷ് തിവാരി എ രാജ കെ

അൽഫോൺസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു

വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രതിരോധ ആവശ്യങ്ങളും സാമ്പത്തിക വികസനവും ത്വരിതപ്പെടുത്തുന്നതിനായിരുന്നു സമിതി രൂപീകരിച്ചത്

ഇജാസിനെ വ്യാഴാഴ്ച മധ്യപ്രദേശിലെ ബരേഹാൻപുരിൽ നിന്നാണ് പിടികൂടിയത് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇല്യാസിനെക്കുറിച്ച് വിവരം ലഭിച്ചത് തുടർന്ന് ഇല്യാസിനെ ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൂടുതൽ ഏപ്പോഴ്ചും ചെയ്യലിനായി ഇരുവരെയും മുംബൈയിലേക്ക് കൊണ്ടൂപ്പോയി

അടുത്തമാസം ഒന്ന് മുതൽ ഇത് നിലവിൽ വരും

ടൂർണമെന്റ് അടിസ്ഥാനത്തിലുള്ള റാങ്കിംഗിന്റെ പോരായ്മകൾ കണക്കിലെടുത്താണ് മാറ്റം കൊണ്ടുവരുന്നത് പുതിയ സംവിധാനം എല്ലാവർക്കും ഗുണകരമാകുമെന്ന് രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ പറഞ്ഞു

ന്യൂഡൽഹിയിൽ മാലദ്വീപ് വിദേശകാര്യ മന്ത്രി അബ്ദുള്ള ഷാഹിദുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാല്പദ്രീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സൊലീഹിന്റെ നേതൃത്വത്തിൽ രാജ്യൂട് ക്ക്ക്കവരിച്ച പുരോഗതിയെ ശ്രീ മോദി അഭിനന്ദിച്ചു

വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി റെറ്റ്നോ മാർസൂദിയും ന്യൂഡൽഹിയിൽ ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ആറാമത് ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത സമിതി യോഗത്തിൽ വിവിധ മേഖലകളിലെ ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തി

ഊർജ്ജ കാര്യക്ഷമതയിലും സംരക്ഷണത്തിലും രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു ഊർജ്ജ സംരക്ഷണത്തിലും ഉപയോഗത്തിലും മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വ്യവസായ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ഇന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി ആർ

അപേക്ഷകൾ പരിശോധിച്ചതിനുശേഷം കൽക്കരി ഖനികളുടെ വിതരണം സംബന്ധിച്ച് മറ്റ് കാര്യങ്ങൾ പരിഗണിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി

ഇതാദ്യമായാണ് വിവര ശേഖരണം പൂർണ്ണമായും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നടത്തുന്നതെന്ന് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറ്റുക്ടർ ജനറൽ എ

വിവരങ്ങൾ കൃത്യതയോടെ ക്രോഡ്ടീക്തിക്കുന്ന തരത്തിലുള്ള ആപ്തിക്കേഷനാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ആദ്ദേഹം പറഞ്ഞു